കുട്ടനാട് മഹാശുചീകരണത്തിന് തുടക്കമായി

പി നദ്ദ

പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാ രുടെ യോഗം ഡൽഹിയിൽ തുടങ്ങി

കെ സ്റ്റാലിനെ ഡി

കെ അധ്യക്ഷനായി തെര ഞ്ഞെടുത്തു

വനിതകളുടെ അമ്പെ യ്ത്തിൽ ഇന്ത്യയ്ക്ക് വെള്ളി

ഒരു മണിക്കൂറോളം അദ്ദേഹം ക്യാമ്പിൽ ചെലവഴിച്ചു

പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല കെ

സി സി പ്രസിഡന്റ് എം

സി ജനറൽ സെക്രട്ടറി ഉമ്മൻചാണ്ടി കെ

വേണുഗോപാൽ എം പി തുടങ്ങിയവർ അദ്ദേഹ ത്തോടൊപ്പമുണ്ട് ആലപ്പുഴയിൽ പ്രളയത്തിലക്പ്പെട്ടവരെ രക്ഷിച്ച മത്സ്യ ത്തൊഴിലാളികൾക്ക് നൽകുന്ന സ്വീകരണച്ചടങ്ങിലും രാഹുൽ പങ്കെടുക്കും മഴക്കെടുതിയിൽ വീട് നഷ്ടപ്പെട്ടവർക്ക് കെ

സി

നാളെ രാവിലെ ഒൻപതിന് ദുരിതാശ്ചാസ കൃാമ്പുക ളിൽ വിതരണം ചെയ്യാൻ എറണാകുളം ഡി സി സി സംഭ രിച്ച ഭക്ഷ്യവസ്തുക്കളും മറ്റും നിറച്ച ലോറികൾ മറൈൻ ഡ്രൈവിൽ രാഹുൽ ഫ്ളാഗ് ഓഫ് ചെയ്യും തുടർന്ന് പ്രത്യേക വിമാനത്തിൽ കോഴിക്കോട്ട് എത്തിയശേഷം ഹെലികോപ്ടറിൽ വയനാട്ടിലേക്ക് പോകും

രാവിലെ എട്ടരയോടെ പ്രത്യേക വിമാനത്തിൽ തിരു വനന്തപുരത്തെത്തിയ രാഹുൽ ഗാന്ധിയെ എ ഐ

സി ജനറൽ സെക്രട്ടറി ഉമ്മൻചാണ്ടി പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല കെ

സി സി പ്രസിഡന്റ് എം

ഹസ്സൻ മുസ്ലിംലീഗ് ദേശീയ ജനറൽ സെക്ര ട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി തുടങ്ങിയവർ ചേർന്ന് സ്വീക രിച്ചു കുട്ടനാട് മഹാശുചീകരണത്തിന് തുടക്കമായി

കൈനകരിയിൽ മന്ത്രി ജി

ശുചീക രണം കുറച്ചുദിവസം തുടരേണ്ടിവരുമെന്ന് മന്ത്രി ഡോ

വെള്ളിയാഴ്ച കുട്ടനാട് പ്ലാസ്റ്റിക് വിരുദ്ധ ദിനമായി ആചരിക്കും പ്രളയത്തിൽ തകർന്ന റോഡ് നിർമ്മാണം വേഗത്തി ലാക്കാൻ പി ഡബ്ല്യൂ ഡി മാന്വൽ ഭേദഗതി ചെയ്യുമെന്ന് മന്ത്രി ജി സുധാകരൻ പറഞ്ഞു

ദുരിതാശ്വാസ ക്യാമ്പുകളായി പ്രവർത്തിക്കുന്ന പകുതി യോളം സ്കൂളുകളിലും ക്ലാസുകൾ തുടങ്ങാൻ കഴിയി ല്ല

സംസ്ഥാനത്തെ എല്ലാ എം പിമാരും എം എൽ എ മാരും ഒരു ലക്ഷം രൂപയെങ്കിലും മുഖ്യമന്ത്രിയുടെ ദുരി താശ്വാസ് നിധിയിലേക്ക് നൽകണമെന്ന് ഭരണ പരി ഷ്കാര കമ്മീഷൻ ചെയർമാൻ വി എസ് അച്യുതാന ന്ദൻ പറഞ്ഞു ഇക്കാര്യത്തിൽ ജനപ്രതിനിധികൾ ഗവൺമെന്റ് ജീവനക്കാർക്ക് മാതൃക കാണിക്കണമെന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു ദുരിതാശ്വാസ നിധിയിലേക്ക് വി എസ് ഒരു ലക്ഷം രൂപ നൽകി

കേരള ഗവൺമെന്റ് നഴ്സസ് അസോസിയേഷൻ തിരുവനന്തപൂരത്ത് അറിയി ച്ചതാണ് ഇക്കാര്യം മുൻ സ്പീക്കർ തേറമ്പിൽ രാമകൃഷ്ണൻ ഒരു മാസത്തെ പെൻഷൻ തുക ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറി

ബി

സെൻട്രൽ എക്സൈസ് ആന്റ് ഓഡിറ്റ് ഡിപ്പാർട്ടുമെന്റിലെ മുൻ സൂപ്രണ്ടുമാരായ അനിൽകുമാർ അജയ് സിംഗ് മുൻ ഇൻസ്പെക്ടർ രവീ ന്ദർ ദഹിയ എന്നിവരോടാണ് ദുരിതാശ്വാസ നിധിയിലേക്ക് പിഴത്തുക നൽകാൻ പ്രത്യേക സി ബി ഐ കോടതി ജഡ്ജി ജഗദീപ് സിംഗ് ഉത്തരവിട്ടത്

കഴിഞ്ഞ തവണ വിചാരണക്ക് ഹാജരാകാത്തതിനാണ് കോടതി ഇവർക്ക് പിഴ വിധിച്ചത് അടുത്ത വിചാരണ തീയ തിയായ ഒക്ടോബർ ഒന്നിനകം ദുരിതാശ്വാസ നിധിയിലേക്ക് തുക നൽകി രശീതി ഹാജരാക്കണമെന്ന് ഉത്തരവിൽ പറ യുന്നു

കണ്ണൂർ താലൂക്ക് ഓഫീസിൽ മന്ത്രി രാമചന്ദ്രൻ കട ന്നപ്പള്ളി തുക ഏറ്റുവാങ്ങി

കടൽ പ്രക്ഷുബ്ധമാകാനും ഇടയുണ്ട് മത്സ്യത്തൊ ഴിലാളികൾ കടലിൽ പോകരുതെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട് രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളികളായ മത്സ്യതൊഴി ലാളികളെ നാളെ സംസ്ഥാന ഗവൺമെന്റ് ആദരിക്കും വൈകീട്ട് തിരുവനന്തപുരം നിശാഗന്ധി ഓഡിറ്റോറിയ ത്തിൽ നടക്കുന്ന ചടങ്ങ് മുഖ്യമന്ത്രി പിണറായി വിജ യൻ ഉദ്ഘാടനം ചെയ്യും പ്രശസ്തിപത്രവും മുഖ്യമന്ത്രി സമ്മാനിക്കും

പി നദ്ദ അറിയിച്ചു

പദ്ധതിയിൻ കീഴിൽ ദേശീയ നൈപുണ്യ വികസന കോർപ്പറേഷനുമായി സ്ഹകരിച്ച് ഒരു ലക്ഷം ആരോ ഗൃ മിത്ര കൾക്ക് പരിശീലനം നൽകുമെന്നും നദ്ദ പറഞ്ഞു

ജെ

ജെ

കെ സ്റ്റാലിനെ ഡി

കെ അധ്യക്ഷനായി തെര ഞ്ഞെടുത്തു ചെന്നൈയിൽ ചേർന്ന പാർട്ടി ജനറൽ കൌൺസിൽ യോഗം ഏകകണ്ഠമായാണ് സ്റ്റാലിനെ പ്രസിഡന്റായി പ്രഖ്യാപിച്ചത് മുതിർന്ന നേതാവും പാർട്ടി പ്രിൻസിപ്പൽ സെക്രട്ടറിയുമായ എസ്

പ്രസിഡന്റ് സ്ഥാന ത്തേക്ക് സ്റ്റാലിനല്ലാതെ മറ്റാരും നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരുന്നില്ല ആരോഗ്യപരമായ കാരണങ്ങളാൽ പാർട്ടി അധ്യക്ഷൻ എം

എം

കരുണാനിധിയുടെ മരണത്തെത്തുടർന്നാണ് സ്റ്റാലിനെ പാർട്ടി അധ്യക്ഷനായി തെരഞ്ഞെടുത്തത് അദ്ദേഹം വൈകിട്ട് ചുമതലയേൽക്കും

കരുണാനിധിക്ക് മരണാനന്തര ബഹുമതിയായി ഭാരത രത്ന നൽകണമെന്ന് ചെന്നൈയിൽ ചേർന്ന ഡി

കെ ജനറൽ കൌൺസിൽ യോഗം ആവശ്യപ്പെട്ടു കേന്ദ്ര ഗവൺമെന്റ് ഇക്കാര്യം മാനിക്കണമെന്ന ആവശ്യം യോഗം പാസ്സാക്കി

തായ്വാന്റെ ലോക ഒന്നാം നമ്പർ തായ് സൂ യിങ്ങാണ് സിന്ധുവിന്റെ എതിരാളി

സംസ്ഥാനത്ത് ഇന്ധനവിലയിൽ ഇന്നും വർദ്ധന

രാജ്യാന്തര വിപണിയിലെ അസം സ്കൃത എണ്ണ വില കൂടിയതാണ് കാരണം ആലപ്പുഴ കട്ടച്ചിറ പള്ളി ഭരണം ഓർത്തഡോക്സ് സഭയ്ക്ക് നൽകി സുപ്രീംകോടതി ഉത്തരവ് യാക്കോ ബായ സഭയുടെ വാദങ്ങൾ കോടതി തള്ളി

കൊച്ചി രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്ന് വിമാന സർവീസുകൾ നാളെ ഉച്ചകഴിഞ്ഞ് രണ്ടിന് ആരം ഭിക്കുമെന്ന് സിയാൽ അറിയിച്ചു ടിക്കറ്റ് ബുക്കിംഗും ആരംഭിച്ചിട്ടുണ്ട്

വീടിനടുത്തെ വെള്ളക്കെ ട്ടിൽ ഇന്ന് രാവിലെയായിരുന്നു അപകടമെന്ന് പൊലീസ് അറിയിച്ചു തൃശൂർ കേരളവർമ്മ കോളേജ് മുൻ പ്രിൻസിപ്പൽ പ്രൊഫ

ബാലകൃഷ്ണൻ ഇരിങ്ങാലക്കുടയിൽ നിര്യാ തനായി

ഫിലിം സെൻസർ ബോർഡ് അംഗം ആകാശവാണി ഉപദേശക സമിതി അംഗം കാലിക്കറ്റ് സർവ്വകലാശാല ബോർഡ് ഓഫ് സ്റ്റഡീസ് ചെയർമാൻ ഡി സി സി അംഗം തുടങ്ങിയ നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്

എന്നാൽ പ്രളയക്കെടുതിയുടെ പശ്ചാത്തലത്തിൽ കലക്ടർ അനുമതി നിഷേധിക്കുക യായിരുന്നു മാതാപിതാക്കളെയും മകളെയും വിഷം നൽകി കൊലപ്പെടുത്തിയ കേസിലെ പ്രതി കണ്ണൂർ പിണറായി യിലെ സൌമൃയുടെ മരണത്തെക്കുറിച്ച് അന്വേഷിക്കാൻ ജയിൽ ഡി ഐ

വെള്ളിയാഴ്ചയാണ് ജയിലിന് പുറത്തെ മരക്കൊമ്പിൽ സൌമ്യയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെ ത്തിയത് ജയിലിൽ സുരക്ഷാ വീഴ്ച ഉണ്ടായെന്ന ആരോപണം ഉയർന്ന സാഹചര്യത്തിലാണ് ഡി ഐ ജി അന്വേഷണത്തിന് എത്തുന്നത്